പിന്നാക്ക ജില്ലകളുടെ വികസനത്തിന് കൂട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അന്താരാഷ്ട്ര സൌരോർജ്ജസഖ്യ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ഷുഹൈബ് വധക്കേസിൽ പ്രതികളായ നാലുപേരെ സി

എം പുറത്താക്കി രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെയും ചെങ്ങന്നൂർ ഉപ തെരഞ്ഞെടുപ്പിലെയും കേരള കോൺഗ്രസ് എം നില പാട് അടുത്ത ഞായറാഴ്ച

ശിന് അഞ്ച് വിക്കറ്റ് വിജയം ഇന്ന് ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം അഞ്ചു വയസ്സ് കഴിയാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് പോളിയോ തുള്ളിമരുന്ന് നൽകാൻ വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിക്കഴിഞ്ഞു പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് രാവിലെ പത്തിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി കെ

ശൈലജ ഉദ്ഘാ ടനം ചെയ്യും ഗവൺമെന്റ് ആശുപത്രികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അംഗൻവാടിക്കൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാന്റ് എന്നി വിട്ടങ്ങളി ലെല്ലാം വാക്സിൻ വിതരണ ബൂത്തൂകൾ പ്രവർത്തിക്കും ഇതിന് പുറമെ മൊബൈൽ വാക്സിൻ ബൂത്തുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ കഴി യാത്ത കുഞ്ഞു ങ്ങൾക്കായി വരും ദിവസങ്ങളിൽ ആരോഗ്യപ്രവർത്തകർ വീടുകളിലെത്തും രാജ്യത്തെ പിന്നാക്ക ജില്ലകളുടെ വികസനത്തിന് കൂട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി നിർദ്ദേശിച്ചു ന്യൂഡൽഹിയിൽ രണ്ടുദിവസത്തെ നിയമ നിർമ്മാണ സഭാംഗങ്ങളുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇന്ന് ദേശീയ സമ്മേളനത്തിൽ ഉപ രാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പങ്കെടുക്കും അന്താരാഷ്ട്ര സൌരോർജ്ജസഖ്യ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും

ഐക്യരാഷ്ട്ര സംഘടനയുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും മേധാവികളും സമ്മേളനത്തിൽ സംബ ന്ധിക്കും സൌരോർജ്ജ പദ്ധതികൾക്കാവശ്യമായ സാങ്കേ തിക വിദ്യയും സാമ്പത്തിക ലഭ്യതയും ഉറപ്പാക്കാനും കൈമാറ്റം ചെയ്യാനും ലക്ഷ്യമിട്ടാണ് സമ്മേളനം

ഡി കാർഡുകളുമായി ഇതിനകും ബന്ധിപ്പിച്ച് കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓംപ്രകാശ് റാവത്ത് ബംഗളുരുവിൽ പറഞ്ഞു

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ അടിസ്ഥാന രഹിത മാണെന്നും പരാതികൾ ഗൌരവമായി കമ്മീഷൻ പരിശോ ധിക്കുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യാതെ മൊത്തം വോട്ടുകൾ കണക്കാക്കുന്ന ടോട്ടലൈസർ മെഷി നുകൾ ഉപയോഗിക്കാനാവില്ലെന്നും അദ്ദേഹം വെളിപ്പെ ടുത്തി ഇതു സംബന്ധിച്ച ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്

ആകാശ് തില്ലങ്കേ രി കെ അഖിൽ ദീപ്ചന്ദ് ടി കെ അസ്കർ എന്നിവരെ യാണ് പുറത്താക്കിയത് പാർട്ടി നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് നടപടി ഇന്നലെ മുഖ്യ മന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണനും പങ്കെടുത്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പുറത്താക്കൽ തീരുമാന മുണ്ടായത് ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെയും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് അടുത്ത ഞായറാഴ്ച ചേരുന്ന പാർട്ടി സിറ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാ നിക്കുമെന്ന് ചെയർമാൻ കെ

പാർട്ടി നിലപാട് ഇരുമുന്നണികൾക്കും നിർണായകമാ യിരിക്കുമെന്നും മാണി കോട്ടയത്ത് അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് തുളുച്ചേരി വയലിലെ തരിശുനില നെൽകൃഷി കൊയ്ത്തുത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യും

യന്ത്രസഹായത്തോടെയായിരിക്കും കൊയ്ത്തും മെതി യും കാസർകോട് ജില്ലയിലെ ഏറ്റവും വലിയ പാലമായ അച്ചാംതുരുത്തി കോട്ടപ്പുറം പാലം ഇന്ന് മുഖ്യമന്ത്രി ജന ങ്ങൾക്ക് തുറന്നുകൊടുക്കും ചടങ്ങിൽ മന്ത്രി ജി സുധാക രൻ അധ്യക്ഷനായിരിക്കും

കാസർകോട് നീലേശ്വരത്ത് എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ അമ്മമാർക്ക് പുനരധിവാസം ഒരുക്കാൻ കുടുംബശ്രീ മിഷൻ ആവി ഷ്കരിച്ച സ്നേഹത്തണൽ തൊഴിൽ സംരംഭക പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഏഴര ലക്ഷത്തോളം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മുഴു വൻ വിദ്യാഭ്യാസ സൌകര്യ മൊരുക്കാൻ ഗവൺമെന്റിന് മാത്രമായി കഴിയില്ലെന്നും അതിനാലാണ് കുടുംബശ്രീയെ ഈ ചുമതല ഏൽപ്പിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു

ന്യൂന മർദ്ദം പടിഞ്ഞാറൻ ദിശയിൽ ലക്ഷദ്വീപിന് സമീപ ത്തേക്ക് നീങ്ങി കൂടുതൽ ശക്തമായേക്കു മെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം

കൊളം ബോയിൽ ആതിഥേയരെ അഞ്ച് വിക്കറ്റിനാണ് ബംഗ്ലാ ദേശ് പരാജയപ്പെടുത്തിയത്

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ രണ്ടാംപാദ സെമി ഇന്ന് വൈകിട്ട് ബംഗളുരുവിൽ നടക്കും

സി പൂനെ സിറ്റിയും ബംഗളുരു എഫ് സിയും തമ്മിലാണ് മത്സരം മഡ്ഗാവിൽ ഇന്നലെ ഗോവ എഫ് സി ചെന്നൈയിൻ എഫ്

ഇരു ടീമു കളും ഓരോ ഗോളടിച്ചു

സി മൊയ്തീൻ അറി യിച്ചു പഞ്ചായത്തുകളിൽ കളിസ്ഥലങ്ങളും നിർമ്മി ക്കും

പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കോട്ടായി പഞ്ചായത്തുകളിൽ കായിക സമുച്ചയങ്ങ ളുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കായികതാരങ്ങൾക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും ഗവൺമെന്റ് നിയമനങ്ങളിൽ ഒരു ശത മാനം സംവരണവും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന തായും മന്ത്രി അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്കായി എൽ

ഗുണമേന്മയുടെയും വിതരണത്തിന്റെയും സേവ നത്തിന്റെയും കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ചയക്കും തയ്യാറല്ലെന്ന് മന്ത്രി വൃക്തമാക്കി കാസർകോട് കിൻഫ്ര പാർക്കിൽ ആരംഭിച്ച കേരള ഗ്രാമ ജ്യോതി ലൈറ്റിംഗിന്റെ തെരുവുവിളക്ക് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്ഥാപന ങ്ങൾക്ക് ടെണ്ടർ നടപടിയില്ലാതെ ക്രൂസിൽനിന്ന് തെരുവു വിളക്കുകൾ വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് സർഗ്ഗാത്മകതയും നിർഭയത്വും നിറഞ്ഞ വൃക്തിത്വ മാണ് കഥാകൃത്ത് ടി പത്മനാഭന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടാമത് ദേശാഭിമാനി പുരസ്കാരം കണ്ണൂരിൽ ടി

രണ്ടുലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം സിറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ സഭയ്ക്കു ള്ളിൽ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന് കേരളാ കത്തോലിക്കാ ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ് സൂസെപാകൃം അഭിപ്രായപ്പെട്ടു സിന ഡിനും സിറോ മലബാർ സഭയക്കും ഇതിന് അധികാരമു ണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം കത്തോലിക്കാ ബിഷപ്സ് കൌൺസിൽ പ്രശ്ന പരി ഹാരത്തിന് മാധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതി നായി കർദ്ദിനാൾ ബസേലിയോസ് ക്ലിമിസും ഇന്നലെ ബിഷപ് സൂസെപാകൃത്തിനൊപ്പം ആലഞ്ചേരിയുമായി ചർച്ച നടത്തിയിരുന്നു

പൂക്കോട് ശിവൻ എന്ന ആനയാണ് പിന്നീട് ശിവസുന്ദർ ആയത് ഇന്ന് ഉച്ചവരെ ആനയ്ക്ക് പ്രണാമം അർപ്പിക്കാൻ ആനപ്രേമികൾക്ക് അവസരമുണ്ട് മൂന്നുമാസമായി എരണ്ടകെട്ട് മൂലം ശിവ സുന്ദർ ചികിത്സയിലായിരുന്നു വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൌര ന്മാർക്ക് പൊലീസ് സുരക്ഷ ഒരുക്കുന്ന സ്നേഹസ്പർശം പദ്ധതി രണ്ടുമാസത്തിനകം എല്ലാ ജില്ലകളിലും നടപ്പാ ക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു

കോട്ടയം ജില്ലയിലെ സ്നേഹസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലോക്നാഥ് ബെഹ്റ ഗവൺമെന്റ് ഡ്രൈവർമാരെ സാങ്കേതിക ജീവനക്കാ രായി അംഗീകരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഇ എസ് ബിജിമോൾ എം

എ ആവശ്യപ്പെട്ടു

ഡ്രൈവേഴ്സ് അസോസിയേ ഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാട്ടനം ചെയ്യുക യായിരുന്നു അവർ

മൊട്ടക്കു ന്നിൽ പച്ചപ്പ് നിലനിർത്താൻ ഗ്രീൻകാർപ് പദ്ധതിയും നടപ്പാക്കും

ചൂട് ക്രമാതീ തമായി ഉയരുന്ന സാഹചര്യത്തിൽ ചെറിയ ആഘോഷ ങ്ങളിലും പൊതു പരിപാടികളിലും കുടിവെള്ള ലഭൃത ഉറപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി

എ ഉദ്ഘാടനം ചെയ്യും ഇടുക്കിയിലെ മലയോര മേഖലയിൽ നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിക്കുന്ന റവന്യൂ വനം വകുപ്പു കളുടെ നടപടിക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു രാജാക്കാട് ഇരുട്ടുകാനം പള്ളിവാസൽ രണ്ടാംമൈൽ എന്നിവിടങ്ങളിൽ പ്രക്ഷോഭം ശക്തമാ വുകയാണ് കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനക്കൂട്ടത്തിന്റെ അക്ര മത്തിൽ വ്യാപക കൃഷിനാശമുണ്ടായി

അഞ്ച് ആനകളാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് ഫാം തൊഴിലാളികൾ പറഞ്ഞു